കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി

ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻതാരം സൌരഭ് വർമ മുഖ്യ റൌണ്ടിൽ കടന്നു

സംസ്ഥാനത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് അറുതിവരാത്ത സാഹചര്യത്തിലാണ് തീരുമാനം ഇതു സംബന്ധിച്ച കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചു

ബ്രിക്സ് ഉച്ചകോടിയിൽ പക്കെടുക്കാൻ ബ്രസീലിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയുടെ ആസ്യക്ഷതയിലായിരുന്നു യോഗം മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് നേരത്തെ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി കേന്ദ്ര ഗവൺമെന്റിന് ശൂപാർശ സമർപ്പിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഭരണഘടനാ വൃവസ്ഥയനുസരിച്ച് സംസ്ഥാനത്ത് ഗവൺമെന്റ് രൂപവത്കരിക്കുക പ്രയാസകരമാണെന്ന് ബോധ്യപ്പെട്ടതായി ഗവർണർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആദ്യം ബി ജെ

യെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിച്ചുവെങ്കിലും പാർട്ടി പിൻമാറിയതിനെ തുടർന്ന് ശിവസേനയെ ഗവർണർ ക്ഷണിച്ചു

എന്നാൽ പാർട്ടിക്ക് ഭൂരിപക്ഷ പിന്തുണ നേടാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ്ഡെസ്ക് ആകാശവാണി

നൂതന ഭാവിയ്ക്ക് സാമ്പത്തിക വളർച്ചഎന്നതാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം ബ്രിക്സ് ഉച്ചകോടിയിൽ ഇത് ആറാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് ബ്രസീൽ പ്രസിഡന്റ് ജയർ എം ബോൾസൊനാരെയുമായി കൂടിക്കാഴ്ച നടത്താനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം പ്രയോജനം ചെയ്യുമെന്ന് ശ്രീ

ഇന്ത്യൻ വ്യാപാര മേഖലയെ പ്രതിനിധീകരിച്ച് വലിയൊരു സംഘവും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അഞ്ച് ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ട ബിസിനസ് ഫോറത്തിൽ ഇവർ പങ്കെടുക്കും ഉച്ചകോടിയ്ക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായും പ്രധാനമന്ത്രി പ്രത്യേക ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും

പഞ്ചാബിലെ സുൽത്താൻഫ്ട്ര് ലോധിയിൽ നടന്ന ജന്മദിനാഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ്രാംനാഥ് കോവിന്ദ് പങ്കെടുത്തു

സ്നേഹം ഐക്യം സാഹോദര്യം സമത്വം എന്നീ ആശയങ്ങളാണ് ഗുരുനാനാക്ക് ജനങ്ങൾക്ക് നൽകിയതെന്ന് രാഷ്ട്രപതി പറഞ്ഞു നന്ദേദിലെ സാഹിബ് സച്ഖന്ദ് ഗുരുദാരയിൽ നടന്ന ആഘോഷപരിപാടിയിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുത്തു ബിഹാറിലെ തക്ത് ശ്രീഹരിമന്ദിർ സാഹിബിലെ ജന്മദിനാഘോഷങ്ങളിൽ വിദേശിയർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഗുരുനാനാക്കിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു

ശ്രീനഗർ ബാരാമുള്ള മേഖലയിലാണ് ഇന്ന് സർവ്വീസ് തുടങ്ങിയത്

നാല് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ദേശീയ പാതയിൽ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം

ഗ്രാമീണർക്ക് ആവശ്യമായ മരുന്നുകളും ആരോഗൃ പരിശോധനയും മെഡിക്കൽ ക്യാമ്പിലൂടെ ലഭ്യമാക്കി പ്രദേശത്തെ ജനങ്ങളുമായി ആശയവിനിമയം നടത്താനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും സേനയ്ക്ക് ഇതിലൂടെ അവസരം ലഭിച്ചു

കൂടുതൽ വിവരങ്ങളുമായി സുവർണ

സ്വതന്ത്രാജ്യമായി ഇന്ത്യയിൽ പൊതുപ്രക്ഷേപണത്തിന്റെ പങ്ക് വളരെ വലുതാണ് പ്ലൂണിജ്യ താല്പര്യങ്ങളില്ലാതെ ഇന്ത്യയിൽ പൊതുജനങ്ങൾക്ക് വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുകയാണ് ആകാശവാണിയും ദൂരദർശനും കൃഷി കല സംസ്കാരം പൊതുജനാരോഗൃം തുടങ്ങി നിരവധി മേഖലകളെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം വാർത്താമേഖലയിലും പൊതുപ്രക്ഷേപകർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ആകാശവാണി സ്റ്റുഡിയോ സന്ദർശനം ചരിത്രത്തിലെ സവിശേഷ ദിനമാണെന്ന് പ്രസാർഭാരതി ചെയർമാൻ ഡോ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ ആറാമത് ഗ്രാമീണ കാർഷിക ധനകാര്യ ലോകകോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ

സൌരോർജ്ജത്തിന് കൂടുതൽ സാധ്യതകളുള്ള ലഡാക്ക് മേഖലയിൽ കാർഷികാഭിവൃദ്ധിക്കായി നടപടികളെടുക്കുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു

വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാല്പ്ദേക്കറിന് സാവന്ത് വഹിച്ചിരുന്ന പൊതുമേഖലാ ഘന വൃവ്വസ്ടായി മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകി ഇന്നലെയാണ് ശിവ്യസേന നേതാവായ സാവന്ത് രാജി സമർപ്പിച്ചത്

ഡി

മുൻ മേയർ വി

പ്രശാന്ത് നിയമസഭാംഗമായതിനെ തുടർന്നാണ് മേയർ തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്

ജി ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആരോപിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്ന് നേരത്തെ പിരിഞ്ഞു വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതാണ് പ്രതിപക്ഷ ബഹളത്തിനിടയാക്കിയത് മുമ്പ് പല സന്ദർഭങ്ങളിലും ഗവൺമെന്റ് നിലപാട് വൃക്തമാക്കിയിട്ടുള്ളതിനാൽ അടിയന്തരപ്രമേയം അനുവദിക്കാനാവില്ലെന്ന് സ്പീക്കർ അറിയിച്ചു എന്നാൽ കിഫ്ബിയെ സിഎജി ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു

തായ്ലൻഡിലെയും ഫ്രാൻസിലെയും കളിക്കാരെ യോഗൃതാ റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് സൌരഭിന്റെ മുന്നേറ്റം ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ബി സായ്പ്രണീത് സമീർ വർമ എച്ച്

പ്രണേയ് പരുപ്പള്ളി കശ്യപ് എന്നിവരാണ് നാളെ ആരംഭിക്കുന്ന പുരുഷ സിംഗിൾസ് മുഖ്യമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്

മുംബൈ പൊലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് ഇവരെ കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തത്

കൊല്ലപ്പെട്ട നാലു മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനും ഹൈക്കോടതി അനുമതി നൽകി

അർബുദരോഗ ചികിത്സാരംഗത്ത് ഗൌരവമായ മാറ്റം കൊണ്ടുവരണമെന്ന് സമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു